ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായില്ല അടുത്ത വൃാഴാഴ്ച വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം

സ്ഥാനാർത്ഥി സാധ്യത പട്ടികയ്ക്ക്ക് രൂപം നൽകാൻ ബി ജെ

കോർ കമ്മിറ്റി ക്യോട്ട്യത്ത് യോഗം ചേർന്നു എൽ

എഫ് പ്രസ്മാനാർത്ഥികൾ പ്രചാരണ രംഗത്ത്

സാമുദായിക ധ്രൂവ്യീക്രണം ഉണ്ടാകുന്ന തരത്തിൽ വോട്ട് തേടരുതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സുപ്രീംകോടതി വിധിയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ചട്ടലംഘനമാകുമെന്നും മുന്നറിയിപ്പ്

മീനമാസ പൂജകൾക്കും ഉത്സവത്തിനുമായി ശബരിമല നട തുറന്നു

സെമി ഫൈനലിന്റെ രണ്ടാം പാദത്തിൽ ഇന്ന് ബാംഗ്ലൂർ നോർത്ത് ഈസ്റ്റ് പോരാട്ടം

ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി എൽ

എഫ് പ്രചരണ ഘട്ടത്തിലേക്ക് കടന്നെങ്കിലും യു ഡി എഫും എൻ

എയും ഇതുവരെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി കരോൾ എബ്രഹാം

നാലിടത്ത് സി

സ്ഥാനാർത്ഥീ നിർണയം പൂർത്തിയായതിനാൽ എൽ ഡി

മിക്ക മണ്ഡലങ്ങളിലും ഇന്ന് സ്ഥാർത്ഥികൾ പരസ്യ പ്രചാരണത്തിലേക്ക് കടുന്നു അതിനിടെ സ്ഥാനാർത്ഥീ നിർണയം സംബന്ധിച്ച ചർച്ചകൾ യു ഡി എഫ് എൻ ഡി എ മുന്നണികൾക്കിടയിൽ അന്തിമ ഘട്ടത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നെങ്കിലും തീരുമാനമാകാതെ പിരിഞ്ഞു അടുത്ത വ്യാഴാഴ്ച വീണ്ടും യോഗം ചേരുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ

ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്ക് അറിയിച്ചു

സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ബി ജെ

സ്ഥാനാർത്ഥികളുടെ സാധ്യത പട്ടികയ്ക്ക് യോഗം രൂപം നൽകിയതായാണ് സൂചന മൂന്ന് മേഖലകളായി തിരിച്ച് നേതൃത്വം തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയാണ് യോഗം ഇന്ന് പരിഗണിച്ചത് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെയായിരിക്ക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക ഫ്ളക്സ് പ്ലാസ്റ്റിക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്ലാസ്റ്റിക് ബോർഡ് ഫ്ളക്സ് എന്നിവ ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതി ഫ്ളക്സ് പ്സാസ്റ്റിക് ബോർഡുകൾക്ക് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബഞ്ച് താത്ക്കാലിക നിരോധനം ഏർപ്പെടുത്തി പരിസ്ഥിതി സൌഹൃദപരമായിരിക്കണം തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്നും കോടതി നിരീക്ഷിച്ചു ജീർണ്ണിക്കുന്ന വസ്തുക്കൾ മാത്രമേ പ്രചാരണത്തിന് ഉപയോഗിക്കാവൂ ഇത് കമ്മീഷൻ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു

മാതൃക പെരുമാറ്റച്ചട്ടം മൂർലിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിശദാംശങ്ങളുമായി കരോൾ എബ്രഹാം

ഇതിന് ചെലവാകുന്ന തുക ഇലക്ഷൻ ചെലവിൽ കണക്കാക്കുമെന്ന് ശ്രീ

പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടാൽ പൊതുജനങ്ങൾ സി വിജിൽ എന്ന ആപ്പ് മുഖേന കമ്മീഷനെ വിവരം അറിയിക്കാം രണ്ട് മിനിട്ട് വരെ ദൈർഘ്യമുള്ള വീഡിയോയും ഇതിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്

തിരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം പാലിക്കുന്നതിനെക്കുറിച്ചും രാഷ്ട്രീയ കക്ഷികളുമായി ചർച്ച നടത്തും

ഇവരെ വീടുകളിൽ നിന്ന് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ ഗതാഗത വകുപ്പിന്റെ വാഹനങ്ങളിൽ എത്തിക്കും

കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി എം

നേരത്തെ സെക്രട്ടറിയായിരുന്ന പീട്ട് ജയരാജൻ വടകര മണ്ഡലത്തിൽ എൽ

സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനെ തുടർന്നാണ് പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്

ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും വി വി പാറ്റ് സംവിധാനവും വോട്ടർമാരെ പരിചയപ്പെടുത്തുന്നതിനുള്ള പരിപാടികൾ ജില്ലയിൽ ഏറെക്കുറെ പൂർണമായി

ഉത്സവത്തിന് മുന്നോടിയായി ഇന്ന് പ്രസാദ ശുദ്ധിയും നാളെ ബിംബ ശുദ്ധി ക്രിയയും സന്നിധാനത്ത് നടക്കും

കർശന സുരക്ഷാ പരിശ്ശോധ്നകൾക്ക് ശേഷമേ ഭക്തരെ സന്നിധാനത്തെക്ക് കടത്തിവ്വിടു്കയുള്ളു ചില സംഘടനകൾ ദർശനത്തിനായി ്യൂവതികളെ സന്നിധാനത്തേക്ക് എത്തിക്കുമെന്ന സമൂഹമാധ്യ്മങ്ങളീൽ പ്രചരിച്ചിരുന്നു യുവതികൾ എത്തിയാൽ പ്രതിഷേധം ർക്തുമാക്കുമെന്ന് ശബരിമല കർമ്മസമിതിയുടെ ആഹ്ട്വാ്ന്ത്തെ തുടർന്ന് പോലീസ് നിരക്ഷണവും ശക്തമീക്കിയിട്ടുണ്ട് ഫുട്ബോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ സെമി ഫൈനലിന്റെ രണ്ടാം പാദത്തിൽ ബാംഗ്ലൂർ എഫ്

ഐ

എല്ലിൽ ഇതാദ്യമായി സെമി ഫൈനലിലെത്തിയ നോർത്ത് ഈസ്റ്റിനെ ഇന്ന് സമനില പിടിച്ചാൽ ഫൈനലിലെത്താം

ഫുട്ബോൾ പരിശീലനം ഫുട്ബോളിൽ താഴേത്തട്ടുമുതൽ നടത്തുന്ന പരിശീലന പരിപാടിയായ കിക്ക്ഓഫിന്റെ ഭാഗമായി പരിശീലകർക്കായുള്ള വിദഗ്ധ പരിശീലന പരിപാടി ആരംഭിച്ചു സംസ്ഥാന കായിക യുവജന കാര്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം കാര്യവട്ടത്താണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം എൽ

സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നിന്ന് ഇരുപത്തിനാല് പരിശീലകർ പങ്കെടുക്കുന്ന പരിശീലന പരിപാടി ശനിയാഴ്ച സമാപിക്കും പുൽവാമ പുൽവാമ ഭീകരാക്രമണ്ത്തിന്റെ സൂത്രധാരൻ മുദാസിറിനെ വധിച്ചതായി സുരക്ഷാസേന പുൽവാമയിൽ സി

എഫ്

ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ വിഭാഗത്തിൽപ്പെട്ട ഭീകരരാണ് കൊല്ലപ്പെട്ടവരിൽ അധികവും

രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പുരസ്ക്കാരങ്ങൾ സമ്മാനിച്ചു

വിഖ്യാത പത്രപ്രവർത്തകൻ കുൽദീപ് നയ്യാർ പ്രശസ്ത നടൻ കാദർ ഖാൻ അകാലിദൾ നേതാവ് സുഖ്ദേവ് സിംഗ് ധിൻഷാ അടക്കമുള്ളവർക്ക് പുരസ്കാരം സമ്മാനിച്ചു കാാദർ ഖാന് പത്മശ്രീയും കുൽദീപ് നയ്യാർക്ക് പത്മഭൂഷണും മരണാനന്തര ബഹുമതിയായാണ് സമ്മാനിച്ചത് മലയാളി ചലച്ചിത്രതാരം മോഹൻലാൽ പത്മഭൂഷണും മലയാളിയും സംഗീതജ്ഞനുമായ കെ

മാമൻ ചാണ്ടി എന്നിവർ പത്മശ്രീ പുരസ്ക്കാരങ്ങളും രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി